യിൽപ്പെട്ടു

ആരും മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടി ല്ലെന്ന് ജില്ലാ കലക്ടർ ബി ജെ പി ദേശീയ നിർവ്വാഹക സമിതി അംഗം വി മുരളീധരൻ മഹാരാഷ്ട്ര യിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കും

പി വീരേന്ദ്രകുമാറും ബി ബാബു പ്രസാദും ഇന്ന് പത്രിക നൽകും അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കർഷകർ ഇന്ന് മഹാരാഷ്ട്ര നിയമസഭാ മന്ദിരം ഉപരോധിക്കും ശ്രീലങ്കയ്ക്ക് പടിഞ്ഞാറ് രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തിപ്രാപിക്കുന്ന സാഹ ചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജ യൻ നിർദ്ദേശം നൽകി ഐ എസ് എൽ ഫുട്ബോളിൽ ബംഗളുരു എഫ് സി ഫൈനലിൽ

വനിതകൾ ഉൾപ്പെടെ പരിക്കേറ്റവർ വനത്തിനുളളിൽ കുടുങ്ങിക്കിടക്കു കയാണെന്നും ഇവരിൽ പലരുടെയും നില പൊള്ളലേറ്റ് ഗുരുതരമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വനത്തിൽ അകപ്പെട്ടവരിൽ കോട്ടയം സ്വദേശി ബീനയും ഉണ്ടെന്നാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രി കെ പളനിസ്വാമി അഭ്യർത്ഥിച്ചതനുസരിച്ച് വ്യോമസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകൾ വനമേഖലയിൽ എത്തിയെങ്കിലും നിരീക്ഷണം നടത്തിയശേഷം മധുരയിലേക്ക് പോയി ഹെലികോപ്റ്ററുകൾ വീണ്ടും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തേനി ജില്ലാകലക്ടർ അറിയിച്ചു പലരും വന ത്തിൽ ബോധരഹിതരായി കിടക്കുകയാണെന്ന് ഫോൺ സന്ദേശം ലഭിച്ചിട്ടു ണ്ടെന്നും അദ്ദേഹം അറിയിച്ചു നാട്ടുകാരും വനപാലകരും രക്ഷാപ്രവർത്തനം തുട രുന്നു കേരളത്തിലെ വനപാലകരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട് കുരങ്ങിണി മലയിൽ കാട്ടുതീയിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തുന്ന തിന് വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ അയച്ചുകൊടുത്തിട്ടുണ്ടെന്ന് രാജ്യര ക്ഷാമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു കാട്ടുതീയിൽപ്പെട്ടവരെ രക്ഷപ്പെടു ത്താനും രക്ഷാദുരിതാശാസ പ്രവർത്തനങ്ങൾ ഏക്ടോപിപ്പിക്കാനും ദക്ഷിണ വ്യോമ കമാന്റിന് നിർദ്ദേശം നൽകിയതായി അവർ ട്വിറ്ററിൽ അറിയിച്ചു ബി ജെ പി ദേശീയ നിർവ്വാഹക സ്മിതി അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ വി മുരളീധരനെ മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സ രിപ്പിക്കാൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു മുരളീധരൻ ഇന്ന് മുംബൈയി ലെത്തി നാമനിർദ്ദേശപത്രിക സമർപ്പിക്കും

സംസ്ഥാന എൻ ഡി എ വൈസ് ചെയർമാൻ രാജീവ് ചന്ദ്രശേഖർ കർണ്ണാടകയിൽ നിന്നും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി നാരാ യൺ റാണെ മഹാരാഷ്ട്രയിൽ നിന്നും പാർട്ടി വക്താവ് ജി

നരസിംഹറാ വു പാർട്ടി ജനറൽ സെക്രട്ടറി അനിൽ ജെയ്ൻ എന്നിവർ ഉത്തർപ്രദേശിൽ നിന്നും മത്സരിക്കും

പാർട്ടി വക്താവ് അഭിഷേക് മനു സിംഗ്വി പശ്ചിമബംഗാളിൽ മത്സരിക്കും തൃണ മൂൽ കോൺഗ്രസ് സിംഗ്വിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പാർട്ടി ജനറൽ സെക്ര ട്ടറി ഓസ്കർ ഫെർണ്ണാണ്ടസ് പ്രമുഖ പത്ര പ്രവർത്തകൻ കുമാർ കെത്കർ എന്നി വർ മഹാരാഷ്ട്രയിൽ നിന്നും എൽ ഹനുമന്തയ്യ സയ്യിദ് നസീർ ഹുസൈൻ ജി

വോട്ടെണ്ണൽ അന്ന് വൈകിട്ട് നടക്കും

എഫ് കക്ഷിരഹിത സ്ഥാനാർത്ഥിയായി എം

വീരേന്ദ്രകുമാറും യു

എഫ് സ്ഥാനാർത്ഥിയായി കെ പി സി സി ജനറൽ സെക്ര ട്ടറി ബി ബാബു പ്രസാദും ഇന്ന് പത്രിക നൽകും പദവിയോ അധികാര സ്ഥാനങ്ങളോ ലക്ഷ്യമിട്ടല്ല താൻ രാഷ്ട്രീയത്തി ലിറങ്ങിയതെന്ന് എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാ പ്പള്ളി പറഞ്ഞു പത്തനംതിട്ട പന്തളത്ത് എസ് എൻ ഡി പി യൂണിയന്റെ ദശവത്സ രാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം താൻ ഗുജറാത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് മത്സരിക്കുമെന്ന വാർത്ത മാധ്യമ സൃഷ്ടിയാണെന്നുംഎസ് എൻ ഡി പിയെ ഒരു മുന്നണിയും സഹായിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു

വികസനത്തിൽ സഹകരണം ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പിദേശകാര്യമന്ത്രാലയ വക്താവ് രവീഷ്കുമാർ ടിറ്ററിൽ അറിയിച്ചു ഗയാന ഫിജി സൊമാലിയ മാലി റുവാൻഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാഷ്ട്രങ്ങളിലെ നേതാക്കളുമായാണ് പ്രധാനമന്ത്രി കൂടി ക്കാഴ്ച നടത്തിയത് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഇന്ന് കർഷകർ മഹാ രാഷ്ട്ര നിയമസഭാ മന്ദിരം ഉപരോധിക്കും

മുഖ്യമന്ത്രി ദേവേന്ദ്രി ഫട്നാവിസിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ജലവിഭവ മന്ത്രി ഗിരീഷ് മഹാജൻ താനെയിൽ എത്തിയാണ് സമരക്കാരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത് കർഷക കടം എഴുതിത്തള്ളുക വനം വകുപ്പ് ആദിവാസികളിൽനിന്ന് പിടിച്ചെ ടുത്ത ഭൂമി തിരിച്ചു നൽകുക വിള നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയവയാണ് കർഷകരുടെ ആവശ്യങ്ങൾ

ഈ സാഹചര്യത്തിൽ കേരള തീരത്ത് കൂടുതൽ ജാഗ്രത പുലർത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി

കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ ജാഗ്രത പാലിക്കണം തീരദേശ മേഖലയിലെ മുൻകരുതൽ പ്രവർത്തനങ്ങൾ നിരന്തരം വിലയിരുത്തുന്നു ണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ഇടയുണ്ടെന്ന് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു

മത്സ്യ ത്തൊഴിലാളികൾ ശ്രീലങ്കയ്ക്ക് പടിഞ്ഞാറും ലക്ഷദ്ധീപിന് കിഴക്കും കന്യാകുമാ രിക്കും തിരുവനന്തപുരത്തിനും പടിഞ്ഞാറും മറ്റന്നാൾ വരെ മത്സ്യബന്ധനം നട ത്തരുതെന്ന് സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി അറിയിച്ചു

എത്തി ബംഗളുരുവിൽ നടന്ന മത്സരത്തിൽ പൂനെയെ ഒന്നിനെതിരെ മൂന്ന് ഗോളു കൾക്ക് തകർത്താണ് ബംഗളുരു ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഫൈനലിൽ എത്തുന്ന ആദ്യ ടീമായത് നായകൻ സുനിൽഛേത്രിയുടെ ഹാട്രിക്കാണ് ബംഗളുരുവിന്റെ വിജയത്തിന് നിർണായകമായത്

ഇന്ന് ശ്രീലങ്കയെ നേരിടും ആദ്യമത്സരത്തിൽ ശ്രീലങ്കയോട് അഞ്ച് വിക്കറ്റിന് തോറ്റ ഇന്ത്യ രണ്ടാം മത്സരത്തിൽ ബംഗ്ലാദേശിനെ ആറ് വിക്കറ്റിന് തോല്പിച്ചിരു ന്നു ഇന്ന് ജയിക്കാനായാൽ പോയന്റ് പട്ടികയിൽ ഇന്ത്യക്ക് മുന്നിൽ എത്താൻ കഴിയും

തൊഴിൽ സംസ്കാരമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കാസർകോട് നീലേശ്വരത്ത് അച്ചാംതുരുത്തി കോട്ടപ്പുറം പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവാസികളുടെ നിക്ഷേപം വികസന രംഗത്ത് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ഗവൺമെന്റ് ചർച്ച ചെയ്തുവരിക യാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ശ്രീധരനുമായി ചർച്ച നടത്തു മെന്നും സുധാകരൻ പറഞ്ഞു

തുള്ളിമരുന്ന് നൽകാൻ കഴിയാത്തവർക്കായി ഇന്നും നാളെയും വീടുകളിൽ ആരോഗ്യപ്രവർത്തകർ സന്ദർശനം നടത്തും സംസ്ഥാനത്ത് ഇന്ന് റേഷൻ കടകൾ അടച്ചിടും റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ തൂക്കക്കുറവ് പ്പരിഹരിക്കണമെന്നാവശ്യ പ്പെട്ട് കേരള റീട്ടെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ ആഹ്വാനപ്രകാര മാണ് കടകൾ അടച്ചിടുന്നത് സമരം പിൻവലിക്കാൻ അസോസിയേഷൻ ഭാരവാ ഹികളുമായു മന്ത്രി പി

് ് ് ് ് ് ് ് ് ചലച്ചിത്രമേളകളിൽ പെൺ സാന്നിധ്യം കുറഞ്ഞുവെന്നും ഇത് പല പ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നില്ലെന്നും കോഴിക്കോട്ട് പ്രാദേശിക രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ ഓപ്പൺ ഫോറം അഭിപ്രായപ്പെട്ടു

ചലച്ചിത്ര മേളയുടെ കാര്യത്തിൽ ഇത് യാഥാർത്ഥ്യമാണെന്ന് ഓപ്പൺ ഫോറത്തിൽ പങ്കെടുത്തവർ പറ ഞ്ഞു സിറിയൻ വർത്തമാനം പങ്കുവയ്ക്കുന്ന ചിത്രമായ ഇൻ സിറിയ ഇന്ന് മേള യിൽ പ്രദർശിപ്പിക്കും ഡിസംബർ മാസമാകുമ്പോഴേയ്ക്കും പാലുൽപാദനത്തിൽ കേരളം സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന് മന്ത്രി കെ രാജു ആലപ്പുഴയിൽ പറഞ്ഞു

മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന കന്നുകുട്ടി പരിപാലന പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

പുസ്തകോത്സവത്തിന്റെ ആദ്യ പതിപ്പ് പ്രതീക്ഷിച്ചതിനേക്കാൾ വൻ വിജയമായതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറ ഞ്ഞു

സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ വന്ന ഈ കുതിപ്പ് കേരളത്തിലെ പ്രസാ ട ധകമേഖലയ്ക്ക് കരുത്ത് നൽകുമെന്നും മന്ത്രി പറഞ്ഞു

ജോലിസാധ്യത ഉറപ്പായാൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം വർദ്ധിക്കുമെന്നും അത് സ്ത്രീ ശാക്തീകരണത്തിന് സഹായകമാകുമെന്നും സമ്മേളനം അംഗീകരിച്ച പ്രമേയം വിലയിരുത്തി കണ്ണൂർ തളിപ്പറമ്പിൽ എസ് എഫ് ഐ നേതാവിന് കുത്തേറ്റ സംഭവവു മായി ബന്ധപ്പെട്ട് നാലു പേരെ പൊലീസ് അറസ്റ്റ് ചെയ്തു തൃച്ചംബരം ക്ഷേത്രോ ത്സവത്തിനിടെ ഇന്നലെ പുലർച്ചെയാണ് തളിപ്പറമ്പ് ഞാറ്റുവയലിലെ കിരണിന് കുത്തേറ്റത് സംഭവത്തിൽ മറ്റ് മൂന്നുപേർക്ക് പരിക്കേറ്റിരുന്നു

പിണറായി ചേരിക്കല്ലിലെ പ്രകാശനാണ് മരിച്ചത്

മദപ്പാട് കണ്ടതിനെത്തുടർന്ന് എലിഫന്റ് സ്കാഡിന്റെ നിർദ്ദേശപ്രകാരം എഴുന്നള്ളത്തിൽ പങ്കെടുപ്പിക്കാതെ മാറ്റിത്തളച്ചിരുന്ന ആനയുടെ ആക്രമത്തിൽ പ്രിക്കേറ്റ പാപ്പാൻ കോതമംഗലം സ്വദേശി കുഞ്ഞുമോനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു

കേരള തമിഴ്നാട് അതിർത്തിയിൽ കുമളിക്കടുത്ത് ഇറച്ചിപ്പാലത്തിനു സമീപം ചരക്കു ലോറി കൊക്കയി ലേക്കു മറിഞ്ഞ് ഡ്രൈവർമാരായ രാജസ്ഥാൻ സ്വദേശികളായ അലിം ലുസ്താസ് എന്നിവർ മരിച്ചു ലോറിയിൽ മൂന്നാമതൊരാൾ കൂടി ഉണ്ടായിരുന്നെന്ന സംശയത്തെ തുടർന്ന് തിരച്ചിൽ തുടരുന്നു